എൻഡിഎ യുടെ ശബരിമല സംരക്ഷണ രഥയാത്ര കാസർകോട്ട് രാവിലെ കർണാടക മുൻ മുഖ്യമന്ത്രി ബി

യെദ്യൂരപ്പ ഉദ്ഘാ ടനം ചെയ്യും കെപിസിസി വർക്കിങ്ങ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ഉച്ചകഴിഞ്ഞ് കാസർകോട് പെർള യിൽ നിന്ന്

കേളപ്പൻ സ്മാരക കവാടം ഇന്ന് നാടിന് സമർപ്പിക്കും നെയ്യാറ്റിൻകര കൊലക്കേസിൽ ഡിവൈഎസ്പിക്കെതിരായ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ്സി ഗോവ ഡൽഹി ഡൈനാമോസ് മത്സരം ൾ ൽ ൾ ൽ ൾ ൾ ൾ ൽ ൾ ൽ വോട്ടിന്റെയോ സീറ്റിന്റെയോ പേരിൽ ശബരിമല നിലപാടിൽ നിന്ന് ഗവൺമെന്റ് ്പിന്നോട്ട് പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്തമാക്കി സംസ്ഥാനത്തെ മതനിരപേക്ഷമായി നിലനിർത്തുകയും വികസനത്തിലേക്ക് നയിക്കുകയും മാത്രമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഡിവൈഎ ഫ്ഐ സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കു കയായിരുന്നു മുഖ്യമന്ത്രി സമൂഹത്തിൽ മതപരമായ വിള്ളലുണ്ടാക്കാൻ പ്രതിലോമ ശക്തി കൾ ശ്രമിക്കുകയാണെന്നും ആചാരത്തിന്റേയും അനുഷ്ഠാനത്തി ന്റേയും പേരിൽ എന്തും കാട്ടിക്കൂട്ടാൻ അനുമതി നൽകിയാൽ ഇപ്പോ ഴത്തെ കേരളം ഇല്ലാതെയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരൂർ റെയിൽവെ സ്റ്റേഷനിലെ വാഗ്ൺ ട്രാജഡി ചുമർചിത്രം മായിച്ച റെയിൽവെയുടെ നടപടി ഹീന്ദവും സ്വാതന്ത്ര്യ സമര ചരി ത്രത്തിന്റെ നിഷേധവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റ പ്പെടുത്തി സംഘപരിവാർ സംഘടനകളുടെ പ്രേരണക്ക് വഴങ്ങി യാണ് റെയിൽവെ ചിത്രം മായിച്ചതെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എന്നാൽ ദുരന്തം ചിത്രീകരിക്കുന്ന ചുമർ ചിത്രം റെയിൽവെ സ്റ്റേഷന്റെ സൌന്ദര്യവത്ക്കരണത്തിന്റെ ഭാഗമാക്കിയതിനെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ചിത്രം മായിച്ചതെന്ന് റെയിൽവെ അറിയിച്ചു റെയിൽവെയുടെ നടപടിയെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ സ്വാഗതം ചെയ്തു എൻഡിഎയുടെയും കോൺഗ്രസിന്റെയും ശബരിമല സംരക്ഷണ യാത്രകൾ ഇന്ന് കാസർകോട് നിന്ന് ആരംഭിക്കും എൻഡിഎയുടെ ശബരിമല സംരക്ഷണ രഥയാത്ര രാവിലെ പത്തിന് മധൂർ ഗണപതി ക്ഷേത്രത്തിൽ കർണാടക മുൻ മുഖ്യമന്ത്രി ബി

യദിയൂരപ്പ ഉദ്ഘാടനം ചെയ്യും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ളയും എൻഡിഎ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്നാണ് രഥയാത്ര നയിക്കുന്നത് വൈകീട്ട് നീലേശ്വരത്തും കണ്ണൂർ ജില്ലാ അതിർത്തിയായ കാലിക്കടവിലും പയ്യ ന്നൂരിലും യാത്രക്ക് സ്വീകരണം നൽകും

കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാസർകോട് പെർളയിൽ വൈകീട്ട് മൂന്നിന് മുൻ കെപിസിസി പ്രസിഡന്റ് എം

ഹസൻ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് തൊടുപുഴ ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് വരും ദിവസങ്ങളിൽ ജാഥകൾ പുറപ്പെടും

ശബരിമലയെ ബിജെപി രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കുകയാ ണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂ രിൽ കൂറ്റപ്പെടുത്തി ഇടത് ഗവൺമെന്റ് കോടതിയെ തെറ്റിദ്ധരിപ്പി ച്ചാണ് ശബരിമല യുവതീ പ്രവേശന വിധി നേടിയെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഇടപെട്ട് വോട്ട് നേടു കയെന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമല്ലെന്നും സുധാകരൻ പറഞ്ഞു അയ്യപ്പജ്യോതി പ്രയാണ രഥയാത്രക്ക് നാളെ തുടക്കമാകുമെന്ന് പന്തളം കൊട്ടാരം നിർവ്വാഹക സംഘം ചെയർമാൻ പി രാമവർമ്മ രാജ പന്തളത്ത് അറിയിച്ചു പെരിനാട് കക്കാട്ട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണ് രാവിലെ രഥയാത്ര ആരംഭിക്കുന്നത്

ശബരിമല സുരക്ഷ സംബന്ധിച്ച് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വിളിച്ച ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരുടെ അവ ലോകന യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും തുലാമാസ പൂജാ വേളയിലേയും ചിത്തിര ആട്ട വിശേഷ സമയത്തേയും സാഹചര്യ ങ്ങൾ യോഗം വിലയിരുത്തും മണ്ഡലകാലത്ത് സന്നിധാനത്തും പരിസരങ്ങളിലും സ്വീകരിക്കേണ്ട പൊലീസ് മുന്നൊരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും

ശബരിമല മഹോത്സവത്തിന്റെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ഇടുക്കി കളക്ടറേറ്റിൽ അവലോകന യോഗം ചേരും

ഗുരുവായൂരിലെ കെ കേളപ്പൻ സ്മാരക കവാടം മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും

കേളപ്പന്റെ സത്യഗ്രഹ വേദിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നെയ്യാറ്റിൻകരയിൽ യുവാവിനെ കാറിന് മുന്നിലേക്ക് തള്ളിയിട്ടു കൊന്നെന്ന ആരോപണം നേരിടുന്ന ഡിവൈഎസ്പി ഹരികുമാറി നെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും ഒളിവിൽ പോയ ഡിവൈഎസ്പിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഹരികുമാ റിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടാനും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവി ക്കാനും ഡിജിപി അനുമതി നൽകിയിട്ടുണ്ട് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ നാളെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും

ഓർഡിനൻസുകൾക്ക് പകരമായി ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനുമാണ് നിയമസഭ ചേരുന്നത്

വൈകീട്ട് ഏഴരയ്ക്ക് ഗോവയിലെ മഡ്ഗാവിലാണ് മത്സരം സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണ ധനസമാഹരണത്തിന് കേരളാ അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയുടെ സഹക രണത്തോടെ ഡോ

ഡിസംബർ മൂന്നിന് കുംബളയിൽ മാരത്തൺ സമാപിക്കും

ജോർജ് മാരത്തൺ സംഘടി പ്പിക്കുന്നത്

കാസർകോട് ജില്ലയിലെ ഉപ്പള കുമ്പള തല പ്പാടി ഉപ്പള തൃശൂർ ജില്ലയിലെ ചാവക്കാട് മണത്തല് തളിക്കുളം കൊപ്രക്കളം ആലപ്പുഴയിലെ അരൂർ ചേർത്തല പുറക്കാട് കരുവാറ്റ റോഡുകൾക്കാണ് ഫണ്ട് അനുവദിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ നയനാമൃതം പദ്ധതി മന്ത്രി കെ

ശൈലജ തിരുവനന്തപുരത്ത് ഉദ്ഘാടനും ചെയ്തു പ്രമേഹബാധ മൂലം നേത്രപടലത്തിനുണ്ടാകുന്ന രോഗാവസ്ഥ കണ്ടെത്താനും ചികി ത്സിക്കാനും ഓർണേറ്റ് ഇന്ത്യ യുകെ യുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഡയബറ്റിക്ക് റെറ്റിനോപ്പതി രോഗ പരിശോ ധനക്ക് പദ്ധതി പ്രകാരം കുടുംബാരോഗൃ കേന്ദ്രങ്ങളിൽ സൌകര്യം ഉണ്ടായിരിക്കും

നിയമസഭാ സ്പീക്കർ പി

ചെന്നൈയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ എം

ഈ മാസം ഒന്നിനാണ് ഷാന വാസിനെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആശുപത്രിയിൽ പ്രവേ ശിപ്പിച്ചത്

ശര വണൻ ബിജെപിയിൽ ചേർന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഞായറാ ഴ്ച്ചയുണ്ടാകുമെന്ന് പാർട്ടി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു ശരവ ണൻ രാജിവെച്ചതിനെ തുടർന്ന് യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടിരുന്നു പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് കൊടിയേറും ബുധനാഴ്ച്ചയാണ് ഒന്നാം രഥോത്സവം വെള്ളിയാഴ്ച്ച മൂന്നാം തേരു ത്സവദിനത്തിൽ ദേവരഥ സംഗമം നടക്കും രഥോത്സവത്തോടനു ബന്ധിച്ച് സംഗീതോത്സവത്തിന് ഇന്നലെ തുടക്കമായി കേരളാ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിജ്ഞാപന നടപടികൾ ഒരു മാസത്തിനകം തുടങ്ങുമെന്ന് പിഎസ്റ്സി ചെയർമാൻ എം

സക്കീർ കട്ടപ്പനയിൽ അറിയിച്ചു നഗർസഭ പിഎസ്സി ഓഫീസിന് വിട്ട് നൽകിയ സ്ഥലത്തിന്റെ ഉടമസ്ഥ രേഖകൾ ഏറ്റുവാങ്ങി സംസാ രിക്കുകയായിരുന്നു പിഎസ്സി ചെയർമാൻ

ആലപ്പുഴ വെൺമണിയിൽ ഡിവൈഎഫ്ഐ ആർഎസ്എസ് സംഘർഷത്തിൽ ആറ് പേർക്ക് പരിക്കേറ്റു

ഇന്നലെ വൈകീ ട്ടുണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎമ്മും എൻഎസ് എസ് കരയോഗങ്ങളും ഇന്ന് വെണ്മണി പഞ്ചായത്തിൽ പകൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു നാടക പ്രവർത്തകർക്ക് സമഗ്ര സംഭാവനക്ക് നൽകുന്ന എസ്

പുരം സദാനന്ദൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു

കഥാ കാരൻ എം

യുടെ ജീവിതവും രചനകളും ആസ്പദമാക്കി പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്ത നാടകമാണ് മഹാസാഗരം ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോ അംബേദ്ക്കർ നാഷണൽ ഫെലോഷിപ്പിന് മിമിക്രി കലാകാരൻ നീലേശ്വരം കിഴ ക്കൻകൊഴുവൽ പി

എം മനോഹർ അർഹനായി